പ്രധാനമന്ത്രിയുടെ ആഹ്വാനം പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുവഴി രാജ്യം പുരോഗതിയിലേയ്ക്ക് നീങ്ങുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ചെയ്ത് അധികാരമേറ്റു

ദാദാസാഹേബ് ഫാൽക്കെ പുരസ്ക്കാരം ഹിന്ദി താരം അമിതാബ് ബച്ചന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു

റാപിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക വനിതാ കിരീടം ഇന്ത്യയുടെ ഗ്രാന്റ് മാസ്റ്റർ കൊനേരു ഹംപിയ്ക്ക്

രാജ്യ പുരോഗതിയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം അടുത്ത ദശകങ്ങളിൽ വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

സമൂഹൃത്തിൽ പുതിയ ഉയരങ്ങൾ യുവജനങ്ങൾ സൃഷ്ടിക്കണമെന്നും ്രിഅദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ രണ്ട് വർഷമായി യുവജനങ്ങൾക്ക് പല തൊഴിൽ മേഖലകളിൽ ഈ പദ്ധതി മുപ്പേന്റ് പരിശീലനം കൊടുത്തുവരികയാണ്

ഇന്ത്യയിൽ പ്രാദേശികമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

രാജ്യത്തെ ചരിത്ര പ്രാധാന്യവും പ്രകൃതി സൌന്ദര്യവും നിറഞ്ഞ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ജനങ്ങളെ പ്രധാനമന്ത്രി ക്ഷണിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കന്യാകുമാരി സന്ദർശിച്ചതും ഉപരാഷ്ട്രപതി എം

ജ്യോതി ശാസ്ത്രംഗത്ത് ഇന്തൃ നേടിയ പുരാതന അറിവുകളിൽ പുതുതലമുറയുടെ ശ്രദ്ധ പതിയണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു സൂര്യനെ പറ്റി കൂടുതൽ പഠിക്കാൻ ഐ

ആർ ഒ ആദിത്യ എന്ന പേരിൽ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എം നേതാവ് ഹേമന്ദ് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു റാഞ്ചിയിലെ മൊർഹാബാദി ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു

റാഞ്ചിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നു സോറനൊപ്പം കോൺഗ്രസ് എട്ടിയുമസഭാ കക്ഷി നേതാവ് അലംഗിർ അലം സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് രാമേശ്വർ ഒറവോൺ ആർ

എ സത്യാനന്ദ് ഭൊക്ത എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു

സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് കേന്ദ്രത്തിന്റെ ് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം ട്വീറ്റിൽ പറഞ്ഞു

ന്യൂഡൽഹിയിൽ സി

എഫ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫീസിന്റെ തറകല്ലിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷാ ജീവനക്കാരുടെ കുടുംബത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രണ്ടായിരത്തോളം സി

എഫ് ജവാന്മാർക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു

രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ വർക്കലയിലേക്ക് തിരിക്കും ശിവഗിരി തീർത്ഥാടന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് തോന്നയ്ക്കൽ സായിഗ്രാമത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ രജതജൂബിലി ആഘോഷത്തിൽ മുഖ്യാതിഥിയാവും വൈകിട്ട് നാലിന് മാർ ഇവാനിയോസ് ക്യാമ്പസിൽ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ അദ്ദേഹം പങ്കെടുക്കും വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഉപരാഷ്ട്രപ്പതി മുടങ്ങും

സിയ്മ്ഭേദഗതിക്കെതിരെ യോജിച്ച് പ്രക്ഷോഭം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ് യോഗം ചുമതലപ്പെടുത്തി വിവിധ കക്ഷിനേതാക്കളും സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു സർവ്വകക്ഷിയോഗം ബി ജെ

പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിനെതിരെ യോഗം വിളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് ബി ജെ പി യോഗം ബഹിഷ്ക്കരിച്ചത് വർഗ്ഗീയ സംഘടനകളുടെ പ്രതിഷേധം അതിരു വിട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു

ലോകത്തിലെ ഒരു ശക്തിക്കും അസം ജനതയെ തോൽപ്പിക്കാനാവില്ലെന്ന് സുവൽകുച്ചിയിൽ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ജനങ്ങൾ അറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടിക്കാരും കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദശകത്തിലെ ഏറ്റവും രൂക്ഷമായ ശൈത്യമാണ് അനുഭവപ്പെടുന്നത്

ഹരിയാനയിലെയും പഞ്ചാബിലെയും കുറഞ്ഞ താപനില സാധാരണയിലും ഡിഗ്രി സെൽഷ്യസ് വരെ താഴെയായിരുന്നു

രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നടന്നത് അനാരോഗ്യം കാരണം ദേശ്ശീയ ഫിലിം അവാർഡ് ദാന ചടങ്ങിൽ ബച്ചൻ പങ്കെടുത്തിരുന്നില്ല

നെയ്യഭിഷേകവും പൂജകളും ചൊവ്വാഴ്ച ആരംഭിക്കും

രണ്ടു മരണം

റഷ്യയിലെ മോസ്ക്കോയിൽ നടന്ന ഫൈനലിൽ ചൈനയുടെ ലീ ടിങ്ജിയെ പരാജയപ്പെടുത്തിയാണ് ഹംപി കിരീടം സ്വന്തമാക്കിയത് ആദ്യ ഗെയിം നഷ്ടപ്പെടുത്തിയെങ്കിലും ഉജ്ജല തിരിച്ചുവരവാണ് ഹംപി നടത്തിയത്